രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വൈകീട്ട് ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോ ദിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും മന്ത്രി മാരുടെ പേരുകൾ രാവിലെ പ്രഖ്യാപിക്കും ലോക്സഭ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ കോൺഗ്ര സിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഡൽഹിയിൽ നാളെ യോഗം ചേരും ഖാദർ കമ്മറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻ്ററി വൊക്കേഷണൽ ഹയർ സെക്കൻ്ററി ഏകീ കരണം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ ആറിലേക്ക് മാറ്റി ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് നിലപാട് മാറ്റില്ലെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് ലണ്ടനിൽ തുടക്കം ൾ ൽ ൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടാം എൻഡിഎ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും വൈകീട്ട് ഏഴിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലെ വേദിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രി മാർക്കും സതൃവാചകം ചൊല്ലിക്കൊടുക്കും

രാഷ്ട്രപതിഭവന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സത്യ പ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് മന്ത്രിമാരുടെ പേരുകൾ ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന മന്ത്രിമാരുടെ കാരൃത്തിൽ രണ്ടാം ദിവസമായ ഇന്നലെയും നരേന്ദ്രമോദിയും ബിജെപി അധ്യക്ഷൻ അമിത്ഷായും കൂടിക്കാഴ്ച്ച തുടർന്നു കഴിഞ്ഞ മന്ത്രിസഭയിലെ കൂടുതൽപേരേയും നിലനിർത്തി ചില പുതുമുഖങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച തായാണ് റിപ്പോർട്ട് ഏതാനും സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെര ഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അമിത് ഷാ മന്ത്രിസ ഭയിൽ ഉണ്ടാവില്ലെന്നും ബിജെപി അധ്യക്ഷസ്ഥാനത്ത് തുടരുമെന്നും റിപ്പോർട്ടുണ്ട് രാജ്നാഥ് സിങ്ങ് നിതിൻ ഗഡ്ഗരി സ്മൃതി ഇറാനി പീയുഷ് ഗോയൽ പ്രകാശ് ജാവ്ദേക്കർ രവിശങ്കർ പ്രസാദ് നിർമ്മല സീതാ രാമൻ നരേന്ദ്രസിങ്ങ് തോമർ ധർമേന്ദ്രപ്രധാൻ അർജ്ജുൻ റാം മേഘ്വാൾ തുടങ്ങിയവർ പുതിയ മന്ത്രിസഭയിലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അതേസമയം അനാരോഗ്യം കാരണം മന്ത്രിസഭയിലേക്കില്ലെന്ന് അറിയിച്ചു ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ചർച്ച നടത്തി മന്ത്രിസ ഭയിൽ ജെയ്റ്റ്ലി വേണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായി അറി യുന്നു അതിനിടെ മിസോറാം മുൻ ഗവർണറും ബിജെപി നേതാവുമായ കുമ്മനം രാജശേഖരൻ ഡൽഹിയിലേക്ക് പോയി നരേന്ദ്രമോദി ഗവൺമെന്റിൽ അദ്ദേഹം അംഗമാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ബിജെപി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഡൽഹിക്ക് പോയത്

ശർമ്മ ഓലി തുടങ്ങിയ നേതാക്കളും ചടങ്ങിനെത്തും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും യുപിഎ ചെയർപേ ഴ്സൺ സോണിയാ ഗാന്ധിയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടു ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാ നങ്ങളിലെ മുഖ്യമന്ത്രിമാരും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു ഒന്നര മണിക്കൂർ നീളുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാൽപതോളം പ്രമുഖർക്ക് അത്താഴ വിരുന്ന് നൽകും

ഡൽഹി പൊലീസിലെയും അർദ്ധ സൈനിക വിഭാഗത്തിലേയും പതിനായിരത്തോളം പേരെ സുരക്ഷ ക്കായി നിയോഗിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രാജയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളുടെ ്യോഗം വിളിച്ചു

പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരി ക്കേണ്ട തന്ത്രങ്ങളും യോഗം ചർച്ച് ചെയ്യുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിങ്ങ് യന്ത്രങ്ങളേയും വിവിപാറ്റ് മെഷീനു കളേയും കുറിച്ച് ഉയർന്ന ആരോപണങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കാൻ പുതു തായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എംപിമാരുടെ യോഗം ശനി യാഴ്ച്ച ഡൽഹിയിൽ ചേരും

പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗം ചർച്ച ചെയ്യും ഖാദർ കമ്മറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ ഹയർസെക്കന്ററി വൊക്കേഷണൽ ഹയർ സെക്കന്ററി ഏകീകരണം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഖാദർ കമ്മറ്റി ശുപാർശകൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാണ് മന്ത്രിസഭാ തീരുമാനം

ഐഎഎസ് ഉദ്യോഗസ്ഥനെ ഇതിന്റെ മേധാവിയായി നിയമിക്കുമെന്നും ഗവൺമെന്റ് അറിയിച്ചു എസ്എസ്എൽസി പ്ലസ്വൺ പ്ലസ്ടു എന്നിവ ഉൾപ്പെടെ പൊതു പരീക്ഷകളുടെ നടത്തിപ്പിന്റെ ചുമതലയും പുതിയ ഡയറക്ടറേറ്റി നായിരിക്കും പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ അധ്യാപക സംഘടനകളും ഖാദർ കമ്മറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത് ജൂൺ ആറി ലേക്ക് മാറ്റാനും മന്ത്രിസഭ തീരുമാനിച്ചു

ചെറിയ പെരുന്നാൾ നാലി നോ അഞ്ചിനോ ആകാൻ സാധ്യതയുള്ളതിനാൽ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ആറിലേക്ക് മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യുഡിഎഫ് നേതാക്കൾ മുഖ്യമ ന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ആവശ്യപ്പെട്ടിരുന്നു പ്ലസ്വൺ പ്രവേശനത്തിന് രണ്ടാമത്തേയും അവസാനത്തേതു മായ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു ഈ ലിസ്റ്റ് പ്രകാരം പ്രവേശനം ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും താൽക്കാലിക പ്രവേശ നത്തിൽ തുടരുന്ന പിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നില നിർത്താൻ ഇനി അവസരം ഉണ്ടായിരിക്കില്ലെന്നും അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അതത് സ്കൂളുകളിൽ ഫീസടച്ച് സ്ഥിര പ്രവേ ശനം നേടണമെന്നും ഹയർ സെക്കന്റി ഡയറക്ടർ തിരുവനന്തപു രത്ത് അറിയിച്ചു

സ്പോർട്സ് കാട്ട സ്പെഷ്യൽ രണ്ടാം അലോട്ടമെന്റും പ്രസി ദ്ധീകരിച്ചിട്ടുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കന്ററിഎൻ

എഫ് ഒന്നാം വർഷ പ്രവേശനത്തിന് രണ്ടാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിച്ചു

ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് നിലപാട് മാറ്റില്ലെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്ത്രീകളുടെ അവകാശ സംര ക്ഷണ പ്രശ്നത്തിൽ എൽഡിഎഫ് ഗവൺമെന്റിന് വൃക്തമായ നില പാടുണ്ടെന്നും അതിൽ നിന്ന് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഈ അവകാശം ഹനിക്കാൻ ആരേയും അനുവദിക്കില്ലെന്നും മുഖൃമന്ത്രി പറഞ്ഞു നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചക്ക് മറുപടി നൽകൂകയായിരുന്നു മുഖ്യമന്ത്രി വർഗീയ ശക്തികളെ ശക്തമായി പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ധാർഷ്ഠ്യമാണെങ്കിൽ അത് ഇനിയും തുടരുമെന്നും പിണറായി പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ശബരിമലയിൽ ഭക്തരുടെ അവകാശം സ്ംരക്ഷിക്കാൻ യുഡിഎഫ് നിയമനിർമ്മാണം നടത്തുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രമേശ് ചെന്നി ത്തല പറഞ്ഞു

സിയുടെ പ്രവർത്തനം മാതൃ കാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവ നന്തപുരത്ത് കെ

സി വാർഷിക കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം പലിശയുടെ കാരൃത്തിൽ വലിയ കുറവ് വരുത്താൻ കെ

സിക്ക് കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം ലണ്ടനിൽ ഉദ്ഘാടന മത്സ രത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും ഇന്ത്യൻ സമയം വൈകീട്ട് മൂന്നിന് കെന്നിംഗ്ടൺ ഓവലിലാണ് മത്സരം റൌണ്ട് റോബിൻ രീതിയിലാണ് ഇത്തവണ ഗ്രൂപ്പ് മത്സരങ്ങൾ നട ക്കുക

അടുത്ത ബുധനാഴ്ച്ച ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം

ചര ക്കുകളുടേയും സേവനങ്ങളുടേയും അടിസ്ഥാന വിലയിൽ അടുത്ത മാസം ഒന്നു മുതൽ ഒരു ശതമാനം സെസ് പിരിക്കാനായിരുന്നു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത്

സെസ്സിന് നികുതി നൽകേണ്ട അവസ്ഥ പ്രളയസെസ്സിന് ബാധകമല്ലെന്ന് ജിഎസ്ടി കൌൺസിൽ വിജ്ഞാപനമിറക്കേണ്ടതിനാലാണ് തീരുമാനം മാറ്റിയത് വരാനിരിക്കുന്ന നിയമസഭ ഉപതിരഞ്ഞെടുപ്പുകളിൽ യു

എഫ് മുഴുവൻ സീറ്റുകളും നേടുമെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ലോക്സഭ തിരഞ്ഞെടുപ്പിൽ യു

എഫിന്റെ മുന്നേറ്റത്തിൽ നന്ദി പറയുന്നതിന് മലപ്പുറത്ത് മുസ്ലീംലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ കാണാനെത്തിയ തായിരുന്നു അദ്ദേഹം കൊച്ചിയിൽ കല്ലട ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട റിപ്പോർട്ട് കൃത്യ മായി ഹാജരാക്കണമെന്ന് കമ്മീഷൻ അംഗം പി

സി ബസ് സ്റ്റാൻഡ് നിർമാണം രണ്ടു മാസത്തിനകം ആരംഭിക്കും മന്ത്രി

ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തു നടന്ന യോഗത്തിലാണ് തീരുമാനം കെട്ടിടത്തിനൊപ്പം ബസ് പാർക്കിങ് യാർഡിന്റെ നിർമാണവും നടക്കും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ താമസിക്കുന്ന മറുനാടൻ തൊഴിലാളികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ തലത്തിൽ കോ ഓർഡിനേഷൻ കമ്മറ്റി പ്രവർത്തനം ആരംഭിക്കുമെന്ന്

റവന്യു ആരോ ഗൃ തൊഴിൽ തദ്ദേശഭരണ വകുപ്പുകൾ ചേർന്നാണ് കമ്മറ്റി രൂപീക രിക്കുന്നതെന്നും ജില്ലാ കലക്ടർ ഇതിന് മേൽനോട്ടം വഹിക്കുമെന്നും നൂഹ് അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി അടുത്ത മാസം ഒന്നു മുതൽ ഏഴുവരെ ഇടുക്കി ജില്ലയിൽ ബോധവൽക്കരണ പരി പാടികൾ സംഘടിപ്പിക്കും ആരോഗ്യ കേരളവും നാഷണൽ ഹെൽത് മിഷനും പബ്ലിക് റിലേഷൻ വകുപ്പും സംയുക്തമായാണ് പരിപാടി കൾ സംഘടിപ്പിക്കുന്നത് കാസർകോഡ് വെള്ളരിക്കുണ്ടിൽ ആരോഗ്യവികുപ്പ് നടത്തിയ വ്യാപക പരിശോധനയിൽ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു സംസ്ഥാന വ്യാപകമായി ആരോഗൃവകുപ്പ് നടത്തുന്ന ജാഗ്രതാ പ്രിശോധനയുടെ ഭാഗമായാ യിരുന്നു പരിശോധന പട്ടികജാതി ഗോത്രവർഗു കമ്മീഷൻ ചെയർമാൻ ബി

പട്ടികജാതി കുടുംബത്തെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കു മെന്ന് കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു വിദ്യാർത്ഥികൾക്കായി സർവ്വീസ് നടത്തുന്ന വാഹനങ്ങൾ ജൂൺ മുതൽ കർശനമായി പരിശോധിക്കുമെന്നും പ്രത്യേക എൻഫോ ഴ്സ്മെന്റ് സ്കാഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കോഴിക്കോട് ആർടിഒ അറിയിച്ചു

വാമനപുരം കളമച്ചൽ കീഴേക്കോണത്ത് വീട്ടിൽ വിജുവാണ് മരിച്ചത് ലണ്ടനിൽ അന്തരിച്ച കണ്ണൂർ ചെമ്പിലോട് ഹയർ സെക്കന്ററി സ്കൂൾ മുൻ അധ്യാപകൻ പി

രാമകൃഷ്ണന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും സംസ്കാരം രാവിലെ പയ്യമ്പലത്ത് നടക്കും കുടുംബശ്രീ അയൽക്കൂട്ട വർഷാചരണത്തിന്റെ ഭാഗമായി ത്രിതല യൂണിറ്റുകളുടെ നടത്തിപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും ഗ്രേഡിങ്ങും ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചു സിഡിഎസ് എഡിഎ സ് അയൽക്കൂട്ടം എന്നീ യൂണിറ്റുകളെ വിലയിരുത്തി കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ ശാക്തീകരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ആലപ്പുഴ കായംകുളം കായംകുളം ആലപ്പുഴ പാസഞ്ചർ ട്രെയിനുകൾ റെയിൽവെ അടുത്ത ആറുമാസ്ത്തേക്ക് കൂടി റദ്ദാക്കി